എ ഫ് സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കും തിരുവനതപുരത്ത് ചേരുന്ന എൽ

എഫ് നേതൃയോഗത്തിൽ ഇതുസംബന്ധിച്ച തീരുമാനമുണ്ടാകും

എഫിനു വേണ്ടി പാലായിൽ മത്സരിച്ചു പോരുന്ന എൻ

പിയുടെ നേതൃയോഗവും ഇന്ന് തിരുവനന്തപുരത്ത് ചേരും രണ്ടു തവണയായി മത്സ രിക്കുന്ന മാണി സി കാപ്പനെ എൻ

പി ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃ ത്വത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട് കേരളാ കോൺഗ്രസ് എമ്മിലെ പിളർപ്പിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ശ്രമങ്ങൾ തുടരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോൺഗ്രസ് കേരളാ കോൺഗ്രസ് നേതാക്കളുമാ യി ചർച്ച നടത്തി

പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻ പിള്ള ഇന്ന് പാലായിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായം ആരായും മറ്റന്നാൾ നടക്കുന്ന എൻ

എ യോഗം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും

ഇത് സംബന്ധിച്ച നിവേ ദനം കഴിഞ്ഞദിവസം ഡൽഹിയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേന്ദ്ര ജല ശക്തി വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന് കൈമാറി

ഈ സാഹചര്യത്തിലാണ് കേന്ദ്രസഹായം ലഭ്യമാക്കണമെന്ന് കേരളം അഭ്യർത്ഥിച്ചത് ദർശ്ശേരി പ കേരളത്തിന്റെ കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത് കരാർ ഒപ്പിടുന്നതിൽനിന്ന് കേന്ദ്രഗ വൺമെന്റ് പിന്മാറണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാനതല കാർഷിക വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ഇത്തരം കരാറുകളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങളുമായും പാർലമെന്റിലും ചർച്ച ചെയ്യ ണമെന്ന് യോഗത്തിനുശേഷം മന്ത്രി വി എസ് സുനിൽകുമാർ വാർത്താസ മ്മേളനത്തിൽ പറഞ്ഞു കരാർ ക്ഷീര സുഗന്ധ വ്യഞ്ജന കശുവണ്ടി സമു ദ്രോത്പന്ന പൌൾട്രി മേഖലകളെ പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്ന വിളകൾക്ക് കൃഷി സബ്സിഡി നൽകില്ലെന്ന നിതി ആയോഗ് തീരുമാനം ശാസ്ത്രീയമായ നില പാടല്ലെന്നും മന്ത്രി പറഞ്ഞു

ഉപഗ്രഹ സഹായത്തോടെ സംസ്ഥാനത്തിന്റെ ജലനിലയെക്കുറിച്ചും ഭൂഗർഭ ജലവിതാനത്തെക്കുറിച്ചും മനസിലാക്കാനും അത് ഫലപ്രദമായി വിനിയോഗിക്കാനും സോഫ്റ്റ്വെയർ സഹായകമാകും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ജലസമ്പ ത്തിന്റെ വിനിയോഗം നിശ്ചയിക്കുന്നതിനും സോഫ്റ്റ്വെയർ ഉപകരിക്കും

ഇതിനുവേണ്ടി രാഷ്ട്രീയ ത്തിനതീതമായി എല്ലാവരും ഒന്നിച്ചുനിന്ന് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം മാനന്തവാടിയിൽ പറഞ്ഞു ഇടതുപക്ഷ സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തി വയനാടിന്റെ വികസന കാര്യം എല്ലാവരുമായും ചർച്ച ചെയ്യും വയനാ ട്ടിലെ ജനങ്ങളുമായി ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന് ബന്ധം സൃഷ്ടി ക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അത് ദുരന്തത്തിലൂടെ തുടങ്ങുന്നത് ദുഖ കരമാണെന്നും രാഹുൽ പറഞ്ഞു ദുരന്ത മുഖത്ത് എല്ലാം മാറ്റിവെച്ച് നട ത്തിയ കൂട്ടായ പ്രവർത്തനം മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെ ട്ടു വയനാട്ടിലെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മാനന്തവാടി ബത്തേ രി കല്പ്പറ്റ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിൽ രാഹുൽ ഇന്ന് സന്ദർശനം നടത്തും മർട്ട്ട്ട്ട്ട്ട രാഹുൽ ഗാന്ധിയുടെ കോഴിക്കോട് ജില്ലയിലെ പരൃടന പരിപാടികളു ടെ ഭാഗമായി സുരക്ഷ ശക്തമാക്കി നാളെ ഉച്ചക്ക് ഒരു മണിക്ക് തിരുവമ്പാടി പാരിഷ് ഹാളിൽ പ്രളയബാധിതരായ വ്യാപാരികളുമായി സംവദിക്കുന്ന രാ ഹുൽഗാന്ധി മൂന്ന് മണിയോടെ മുക്കത്തെ എം പി ഓഫീസ് ഉദ്ഘാടന ചട ങ്ങിൽപങ്കെടുക്കും

പുത്തുമലയിൽ മരിച്ചവരുടെയും കാ ണാതായവരുടെയും ആശ്രിതർക്ക് അർഹമായ അനുകൂലൃം ലഭൃമാക്കുമെ ന്ന് സബ് കലക്ടർ അറിയിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട കനത്ത മഴയിൽ മംഗലാപുരത്തിന് സമീപം മണ്ണിടിഞ്ഞതിനെ തുടർന്ന് കൊങ്കൺപാത വഴി പോകുന്ന ഇന്നത്തെ പത്ത് ട്രെയിനുകൾ ഉൾപ്പെടെ നാല് ദിവസത്തെ ട്രെയിനുകൾ റദ്ദാക്കി

മംഗലാപുരം മഡ്ഗാവ് മംഗലാപുരം എക്സ്പ്രസ് ട്രെയിനും മംഗലാപുരം മഡ്ഗാവ് പാസഞ്ചർ ട്രെയിനും റദ്ദാക്കിയിട്ടുണ്ട് നാളത്തെ കൊച്ചുവേളി ഭാവ്നഗർ എക്സ്പ്രസ് വെള്ളിയാഴ്ചത്തെ എറണാ കുളം പൂനെ സൂപ്പർഫാസ്റ്റ് കൊച്ചുവേളി ഇൻഡോർ ശനിയാഴ്ചത്തെ നിസാ മുദ്ദീൻ എറണാകുളം തുരന്തോ എക്സ്പ്രസ് എന്നിവയും റദ്ദാക്കിയിട്ടുണ്ട് ഇന്ന് നേത്രാവതി മംഗള എക്സ്പ്രസ് ട്രെയിനുകൾ ഷൊർണൂർ പോത്ത ന്നൂർ ഈറോട് ജോലാർപേട്ട വഴിയായിരിക്കും സർവീസ് നടത്തുക രദ്ദേഷ്ടങ സംസ്ഥാനത്ത് ശനിയാഴ്ചവരെ കനത്ത മഴക്ക് സാധ്യതയുണ്ടെന്ന് കാലാ വസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു അതിശക്തമായ മഴ കണക്കിലെടുത്ത് എട്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് കനത്ത മഴ പ്രതീക്ഷിക്കുന്നത് നാളെ തിരുവ നന്തപുരം കൊല്ലം ജില്ലകളൊഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാ യിരിക്കും

പൊതു നിരത്തിലൂടെ നടക്കാനും പൊതു കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാനും കേരളത്തിലെ അധസ്ഥിത ജനതക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാനാ യിരുന്നു അയ്യങ്കാളി

ദേശീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ യോഗം ചർച്ച ചെയ്യുമെന്ന് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം

ഇന്ന് പത്തിനങ്ങളിലാണ് ഫൈനൽ

എം വിജയൻ കോഴിക്കോട്ട് പറ ഞ്ഞു കൊൽക്കത്തയിൽ സെമിയിൽ ഈസ്റ്റ്ബംഗാളിനെയും ഫൈനലിൽ മോഹൻ ബഗാനേയും പരാജയപ്പെടുത്തുകയെന്നത് അത്ര എളുപ്പമുള്ള കാ രൃമല്ലെന്നും വിജയൻ അഭിപ്രായപ്പെട്ടു

സൌത്ത് ബസാർ ഫ്ളൈഓവർ മേലെ ചൊവ്വ അടിപ്പാത സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് എന്നീ പദ്ധതികൾക്കാണ് അംഗീകാ രം നൽകിയതെന്ന് മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു ദർവ്വട്ടങ തീരസംരക്ഷണത്തിന് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതായി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു വലിയതുറ ഗവൺമെന്റ് റീജ്യണൽ ഫിഷ റീസ് ടെക്നിക്കൽ ആന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ദർവ്വെടെ ഏവർക്കും വിദ്യാഭ്യാസം ലഭ്യമാകുന്ന കേരളത്തിൽ തൊഴിലിടങ്ങളിൽ ലിംഗ അസമത്വം നിലനിൽക്കുന്നതായി മന്ത്രി ഡോക്ടർ കെ

തൊഴിലിടങ്ങളിലെ ലിംഗസമത്വം സംബന്ധിച്ച് അസാപിന്റെ ആഭി മുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ശില്പശാലയിൽ അധ്യക്ഷം വഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ കലാലയങ്ങൾ സ്ത്രീസൌ ഹൃദമാണെന്നും തൊഴിൽ മേഖലകൾകൂടി ഇത്തരത്തിൽ മാറണമെന്നും മന്ത്രി പറഞ്ഞു പ്രശസ്ത നർത്തകി ഡോക്ടർ മല്ലികാ സാരാഭായ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു രുട്ട്ട്ട്ട്ട്ട്ട്ട വത്തിക്കാന്റെ നിർദ്ദേശങ്ങൾ സിറോ മലബാർ സഭ സിനഡ് ലംഘിക്കു ന്നുവെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരുവിഭാഗം വൈദി കരും വിശ്വാസികളും കൊച്ചിയിൽ പറഞ്ഞു നിലവിലെ സഭയിലെ പ്രശ്ന ങ്ങളിൽ നീതിയുക്തമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധ നടപടികൾ ശക്തമാക്കുമെന്ന് അവർ പറഞ്ഞു അതിനിടെ കാനോനികമായ എല്ലാ നടപ ടികളും പൂർത്തീകരിച്ചാണ് സിസ്റ്റർ ലൂസിക്കെതിരെ ക്ലാരിസ് സന്യാസിനി ട സമൂഹത്തിന്റെ ജനറാൾ നടപടി സ്വീകരിച്ചതെന്ന് സിറോ മലബാർ സഭ വില യിരുത്തി

പി ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇത്ര യും ഭീമമായ തുക കേന്ദ്ര സർക്കാരിന് നൽകുന്നത് മൂലം റിസർവ്വ് ബാ ങ്കിന്റെ നിലനിൽപ് തന്നെ അപകടത്തിലാവുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

എം സംസ്ഥാന സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ പറഞ്ഞു പാലക്കാട്ട് എൽ

എഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

പി പറഞ്ഞതിൽ ഉറച്ച് നിൽക്കുകയാണെങ്കിൽ നടപടി ആവശ്യപ്പെടുമെന്ന് കെ മുരളീധരൻ എം

ഇത് തു ടർന്നാൽ പരസ്യമായി ബഹിഷ്ക്കരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം അറി യിച്ചു രുട്ടിട്ട്ട്ട്ട്ട്ട വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് റെയിൽവെ പ്രീമിയം തൽക്കാൽ ടിക്കറ്റെടുത്ത് വില്പന നടത്തിയ മൂന്ന് ബംഗാളികൾ ചെങ്ങന്നൂ രിൽ പിടിയിലായി ബംഗാൾ മാൾഡ സ്വദേശി അൻസാരി സുഖ്ദേബ്പൂർ സ്വദേശി നന്ദലാൽ മണ്ഡൽ ബിപ്ലവ്പോൾ എന്നിവരെയാണ് ചെങ്ങന്നൂർ ആർ

എഫ് പിടികൂടിയത് ഇവരുടെ പക്കൽനിന്ന് അഞ്ചുലക്ഷം രൂപയുടെ ടിക്കറ്റ് കണ്ടെടുത്തു അൻപതിൽപ്പരം വ്യാജ തിരിച്ചറിയൽ കാർഡുപയോ ഗിച്ചായിരുന്നു തട്ടിപ്പ് രുട്ട്ട്ട്ട്ട്ട്ട്ട പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ മെഡി ക്കൽ ഓഫീസും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ചേർന്ന് കൊല്ലം ജില്ലയിലെ ഹോട്ടലുകൾ ബേക്കറികൾ കൂൾ ബാറുകൾ സോഡാ ഫാക്ടറികൾ ഐ സ് ഫാക്ടറികൾ സ്കൂളുകളിലെയും ഹോസ്റ്റലുകളുടെയും അടുക്കളകൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി

എം അംഗമായിരുന്ന അവർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരംസമിതി ചെയർ പേഴ്സണായിരുന്നു